പാസ്സാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി അറിയിച്ചു ദുരാചാരത്തെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ എറിയുന്നതാണ് ബില്ലെന്ന് പ്രധാനമന്ത്രി

ജമ്മുകശ്മീരിലെ ബന്ദിപ്പോര ്ജില്ലയിൽ സൈനൃം നുഴഞ്ഞു കയറ്റ ശ്രമാപ്പരാജയപ്പെടുത്തി മൂന്ന് തീവ്രവാദികളെ വധിച്ചു

ഉന്നാവോ ബലാത്സംഗ കേസിലെ പെൺകുട്ടി വാഹനപകടത്തിന് ഇരയായ സംഭവത്തിൽ സസ്പെന്റ് ചെയ്ത ബിജെപി എം

നിരോധിത മരുന്ന് ഉപഭോഗം ക്രിക്കറ്റ് താരം പൃഥ്വി ഷായെ ബിസിസിഐ എട്ട് മാസത്തേയ്ക്ക് സസ്പെൻഡ് ചെയ്തു

മുസ്തീം വനിതകൾക്ക് സാമൂഹിക നീതിയും അന്തസ്സും ലിംഗ സമത്വവും ഉറപ്പു വരുത്താൻ ലക്ഷ്യമിടുന്നതാണ് മുത്തലാഖ് ബില്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയിൽ പറഞ്ഞു ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാജ്യസഭ നിരാകരിച്ചു കോൺഗ്രസ് ഡിഎംകെ തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ എൻ

പി ഉൾപ്പെടെ ഉള്ളവർ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു മുത്തലാഖ് നിരോധിക്കുന്ന മുസ്ളീം സ്ത്രീകളുടെ വിവാഹ അവകാശ സംരക്ഷണ ബില്ല് ലോക്സഭ കഴിഞ്ഞ ആഴ്ച പാസാക്കിയിരുന്നു

മുത്തലാഖ് ബിൽ പാസാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു സമൂഹ സമത്വവും ലിംഗനീതിയും ഉറപ്പാക്കുന്ന നടപടിയുടെ വിജയമാണിതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു എന്നാൽ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണമൊ ജീവനാംശമോ ഉറപ്പാക്കുന്നതിന് ബില്ലിൽ വ്യവസ്ഥയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാംനബി ആസാദ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സാമൂഹിക നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നൂതന കണ്ടുപിടുത്തങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇന്നൊവേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നത്

രാജ്യത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വീദൂര ഗ്രാമങ്ങളിലും ഇന്നൊവേഷൻ സെന്ററുകൾ ആരംഭിക്കാൻ അദ്ദേഹം നീതി ആയോഗിനോട് ആവശ്യപ്പെട്ടു

ബന്ദിപ്പോര ജില്ലയിലെ ഗുരുസ് സെക്ടറിലെ നിയന്ത്രണ്ട് രേഖയ്ക്ക് സമീപമാണ് സൈന്യം നുഴഞ്ഞ് കയറ്റ ശ്രമം പർാജയപ്പെടുത്തിയത് എന്നാൽ തീവ്രവാദികൾ ഏത് സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായിട്ടില്ലെന്ന് സൈനിക അധികൃതർ അറിയിച്ചു ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് അതിനിടെ നിയന്ത്രണ രേഖയിൽ പാക്കിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി

മംഗാലപുരം ഉള്ളാളിന് സമീപം നേത്രാവതി നദിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് ഇന്നലെയാണ് നേത്രാവതി നദിയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്നും വി

സിദ്ധാർത്ഥയെ കാണാതായത് ഇന്ത്യൻ കോഫിയെ ലോക പ്രശസ്തമാക്കുന്നതിൽ സിദ്ധാർത്ഥയുടെ കഫേ കോഫി ഡേ വലിയ പങ്കാണ് വഹിച്ചത്

കർണ്ണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ എസ്

കൃഷ്ണയുടെ മരുമകനാണ് വി

സിദ്ധാർത്ഥ

ക്രിമിനൽ ഗൂഢാലോചന കൊലക്കുറ്റം ആസൂത്രിത കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ എഫ് ഐ ആറിൽ സിബിഐ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

സംഭവത്തിൽ പെൺകുട്ടിയുടെ രണ്ട് ബന്ധുക്കൾ കൊല്ലപ്പെടുകയും പെൺകുട്ടിയ്ക്കും അ്ഭിഭാഷകനും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു

തിങ്കളാഴ്ച സ്പീക്കർ രമേഷ് കുമാർ രാജി വച്ച ഒഴിവിലാണ് ശ്രീ

മുഖ്യമന്ത്രി യദ്യൂരപ്പയോടും മറ്റ് ബിജെപി നേതാക്കളോടും ഒപ്പം ഇന്നലെയാണ് ശ്രീ ഹെഗ്ഡെ കഗേരി നിയമസഭാ സെക്രട്ടറി വിശാലാക്ഷിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്

ബീഹാറിലും കനത്ത മഴ തുടരുകയാണ്

വോയ്സ് മധ്യപ്രദേശിലെ ഖണ്ഡുവ ഷിയോപുർ ഷാജപുർ സെഹോർ തുടങ്ങിയ ജില്ലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്

മധ്യപ്രദേശിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള അഞ്ച് ഡാമുകൾ തുറന്നിട്ടുണ്ട് മുതാ ഗോദാവരി നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്

പല ന്ദികളിലും വെള്ളപ്പൊക്കം രൂക്ഷമാണ് കിഴക്കൻ ചമ്പ്റിര്ൻ സീതാമർഹി ദർബംഗ എന്നീ സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു

ആർ

ആർ എഫിന്റെയും സൈനികർ ആയിരത്തോ്ളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്

പബ്ലിക്കേഷ ൻ ഡിവിഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെയും മാഗസിനുകളുടെയും തത്സമയ വിവരങ്ങൾ വെബ്സൈറ്റ് വഴി ലഭൃമാകും ഓൺലൈൻ വഴി പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ ബുക്കുകളുടെ അനധികൃത ഉപയോഗം നിരീക്ഷിക്കുന്നതിന് ഡിജിറ്റൽ ഡിപിഡി എന്ന മൊബൈൽ ആപ്ളിക്കേഷനും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു

എല്ലാ ജീവനക്കാരുടേയും പ്രവർത്തനം വിലയിരുത്താൻ മാത്രമാണ് നിർദ്ദേശം നൽകിയുട്ടുള്ളതെന്ന് റെയിൽവേ മന്ത്രാലയം വാർത്താകുറിപ്പിൽ വ്യക്തമാക്കി

അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പഴുതടച്ച സുരക്ഷ സംവിധാനങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ ഇതുവരെ മൂന്നരലക്ഷത്തോളം പേർ തീർത്ഥാടനം പൂർത്തിയാക്കിയതായി അമർനാഥ് ക്ഷേത്ര ബോർഡ് അറിയിച്ചു